രാജ്യത്തിന്റെ അശ്രുപൂജ രാഷ്ട്രീയ സ്മൃതിസ്ഥലിൽ അന്തൃ വിശ്രമം കേരളത്തിൽ പ്രളയക്കെടുതി രൂക്ഷം

സ്ഥിതിഗതികൾ വില്യിരുത്താൻ പ്രധാനമന്ത്രി ഇന്നെത്തും

കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം

കാസർഗോഡും തിരുവനന്തപുരവും ഒഴികെ റെഡ് അലേർട്ട് തുടരും

ഭൌതികദേഹം യമുനാതീരത്തെ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗ് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുതിർന്ന ബിജെപി നേതാവ് എൽ

അദ്വാനി ലോക്സഭാസ്പീക്കർ സുമിത്രാമഹാജൻ സേനാമേധാവികൾ തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിരതന്നെ അന്തരിച്ച നേതാവിന് അന്തിമാജ്ഞലി അർപ്പിക്കാനെത്തി ലോക നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു

സംസ്ഥാനത്തുടനീളം ജനജീവിതം ദുഃസ്സഹമായിരിക്കുകയാണ്

പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിമാരും സ്ഥിതിയുടെ ഗൌരവം മനസിലാക്കിയാണ് പ്രതികരിക്കുന്നതെന്നും ശ്രീ

നാഷണൽ ക്രൈസിസ് മാന്റേജ്ഐമന്റ് സമിതി മുല്ലപ്പെരിയാർ സമിതി രണ്ടു സംസ്ഥാനങ്ങളിള്ലെയും ചീഫ് സെക്രട്ടറിമാർ എന്നിവർ വീഡിയോ കോൺഫ്റൻസിലൂടെ ഇന്ന് യോഗം ചേർന്നിരുന്നു

പമ്പ അച്ചൻകോവിൽ ആറുകളുടെ തീരങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ പേരേയും ഒഴിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ

എറണാകുളം വൈപ്പിൻ കരയിൽ കടൽക്ഷോഭമുണ്ടായതിനെ തുടർന്ന് പത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്നു

വരുന്ന പല സഹായ അഭ്യർത്ഥനകളും ആവർത്തനമാണെന്നും അതിനാൽ പുതുതായി സഹായം ആവശ്യമുള്ളവരിൽ എത്താനാകുന്നില്ല കൃത്യമായ സ്ഥലവും ലാൻഡ്മാർക്കും ജില്ലയും കുടുങ്ങികിടക്കുന്നവരുടെ കൃത്യമായ എണ്ണവും അവരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം രക്ഷാപ്രവർത്ത്നങ്ങൾ വേഗത്തിലാക്കുവാൻ അത് സഹായകരമാകുമെന്നും മുഖ്യമന്ത്രി ഒദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു

കുട്ടനാടിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ അദ്ദേഹം ബോട്ടുജട്ടിയിലും കൃാമ്പിലുമുള്ളവരെ സുരക്ഷിതമായി ബോട്ടുകളിലും വള്ളങ്ങളിലും എത്തിക്കുന്നതിന് സഹായിച്ചു

കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് കൈനകരി ഭാഗത്തുതന്നെ ചിലർ നിന്നതാണ് സ്ഥിതി കൂടുതൽ മോശമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു

ബുക്കുചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുന്നവർക്ക് മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന് കമ്പനി ഫെയ്സ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു യാത്രാ തീയതി മാറ്റുന്നതും സെക്റ്റർ മാറ്റുന്നതും പൂർണ്ണമായും സൌജന്യമായിരിക്കും

ട്ട ഇന്ധനക്ഷാമം തിരുവനന്തപുരത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ ഭരണകൂട്ടും അറിയിച്ചു മഴക്കെടുതി രുക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്നും ഇന്ധനം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് സമൂഹ്മാ്ധ്യമങ്ങളിൽ വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു

എല്ലാ പമ്പുകളിലും നാളെ രാവിലെ ഇന്ധനമെത്തിക്കുമെന്നും ഇന്ധനക്ഷാമമില്ലെന്നും പ്പെട്രോളിയം കമ്പനികൾ അറിയിച്ചു

നാവിക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേംബറിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത് നാവിക് വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കെൽട്രോണിന് കൈമാറിയിട്ടുണ്ട്

കൂടുതൽ ഫലപ്രദമായി നാവിക് ഉപയോഗിക്കുന്നതിന് മലയാളത്തിൽ ശബ്ദ സന്ദേശം നൽകുന്നതിനും തദ്ദേശീയ അതിരുകൾ കടക്കുമ്പോൾ അലാറം പ്രവർത്തിക്കുന്നതിനും നേരത്തെ ചേർത്തിട്ടുള്ള സന്ദേശങ്ങൾ കൺട്രോൾ റൂമിൽ എത്തിക്കുന്നതിനും വാട്ടർപ്രൂഫായി ഉപകരണം സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ കൂടി പുതുതായി നിർമ്മിക്കുന്ന നാവികിൽ ഉൾപ്പെടുത്തും കപ്പൽ ചാലുകളിൽ പ്രവേശിക്കുന്ന ബോട്ടുകൾക്കുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ ആവശ്യമായ സെൻസർ സാങ്കേതിക വിദ്യ കൂടി കെൽട്രോണിന് കൈമാറാൻ ഐ

യുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകണമെന്നും ഇതിനായി ഐ

യുടെയും കെൽട്രോണിന്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു

ട്ടടടടടടടടടടടടടട ഇന്ധന നിയന്ത്രണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് തിരുവനന്തപുരം ജില്ലാകളക്ടർ ഡോ കെ വാസുകി പമ്പ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി